കേരളത്തിലേയ്ക്കുള്ള പ്രവാസികളുടെ മടക്കം സംബന്ധിച്ച് വൃക്തമായ നിർദ്ദേശങ്ങളും പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ

കേരളത്തിൽ ഇന്ന് മൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

മരണം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം

ഇടവേളകളിൽ പരമാവധിട് സാമൂഹിക അകലം ഉറപ്പാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

അഞ്ചോ അതിലധികമോ പേർ കൂട്ടം ചേരുന്നത് ഒരു സ്ഥാപനങ്ങളും അനുവദിക്കരുതെന്നും അവർ പറഞ്ഞു വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയിലും സാമൂഹിക അകലം കൃതൃമായി പാലിച്ചിരിക്കണമെന്നും അവർ വൃക്തമാക്കി

ഇ യു എസ് ബ്രിട്ടൻ സിംഗപ്പൂർ മലേഷ്യ ഫിലിപ്പീൻസ് സൌദി അറേബ്യ ഖത്തർ ബഹറിൻ ഒമാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലകപ്പെട്ടവരെയാണ് ഘട്ടം ഘട്ടമായി നാട്ടിലെത്തിക്കുന്നത്

മഹാരാഷ്ട്രയിലേക്കും തെലങ്കാനായിലേക്കും ഏഴും ഗുജറാത്തിലേയ്ക്കും അഞ്ചും വിമാനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്

അതേസമയം നാവികസേനയുടെ മൂന്ന് കപ്പലുകൾ മാൽദ്വീപ് യു എ ഇ

രോഗലക്ഷണങ്ങളില്ലാത്തവരെ മാത്രമെ യാത്രയ്ക്ക് അനുവദിക്കുവെന്നും യാത്രക്കാർ പ്രവർത്തനചട്ടം കൃത്യമായും പാലിക്കണമെന്നും കേന്ദ്രസർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരുടെ ആരോഗ്യ പരിശോധന നിരീക്ഷണം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ അത് സംസ്ഥാന സർക്കാരുകൾ ക്രമീകരിക്കാനും നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിമാനത്തിൽ എത്തുന്ന ആരെയും വീടുകളിലേയ്ക്ക് അയയ്ക്കില്ല ഇവർ ചുരുങ്ങിയത് ഏഴ് ദിവസം നിർബ്ബന്ധിത നിരീക്ഷണത്തിൽ കഴിയണം

മൂന്ന് പ്രേം വയനാട് ജില്ലക്കാരാണ് സമ്പർക്കം മൂലമാണ് മൂവർക്കും രോഗബാധയുണ്ടായത് ചെന്നൈയിൽ പോയി മടങ്ങി എത്തിയ ഡ്രൈവർക്ക് കഴിഞ്ഞ ദിവസം രോഗ ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇയാളുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വാഹനത്തിലെ ക്ലീനറുടെ മകനുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ആവശ്യമായ എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് ഇന്നലെ മുതൽ തൊഴിലുറപ്പ് പ്രവൃത്തികൾ പുനരാരംഭിച്ചതെന്ന് കാസർഗോഡ് ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പ്രദീപൻ കെ അറിയിച്ചു ഹോട്ട്സ്പോട്ടുകളായ എട്ട് ഗ്രാപഞ്ചായിത്തുകളിലൊഴികെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്

ഇ

മരണം രണ്ടര ലക്ഷത്തിലധികമായി

യംഗൂൺ വിമാനത്താവളത്തിൽ മ്യാൻമാറിലെ ഇന്ത്യൻ അംബാഡിഡർ സൌരഭ് കുമാറാണ് മെഡിക്കൽ സാമഗ്രികൾ മ്യാൻമാർ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറിയത്

ബഡ്ഗാം ജില്ലയിലെ പഖേർ പോറാ മേഖലയിൽ സിആർഫിഎഫിന്റെ ബങ്കറിന് നേരെയാണ് ആക്രമണമുണ്ടായത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല